തോമസ് ഐസക്

മൂന്നേ മുക്കാലിന് റിഹേഴ്സൽ നടക്കും

മന്ത്രി കെ

സി പി ഐ എം പൊളിറ്റ്ബ്യൂറോ അംഗം ബൃന്ദകാരാട്ട് തിരുവനന്തപുരം വെള്ളയമ്പലത്ത് അവസാന കണ്ണിയാവും നവോത്ഥാന മൂല്യസംരക്ഷ ണസമിതിയുടെ ആഹ്വാനപ്രകാരം തീർക്കുന്ന വനിതാമ തിലിന് സംസ്ഥാന ഗവൺമെന്റും എൽ ഡി എഫും സമ്പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്

മന്ത്രിമാർ മഹിളാ സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സാഹിത്യ സാംസ്കാരിക നായകൻമാർ തുടങ്ങിയവർ വിവിധയിട ങ്ങളിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും

വനിതാമതിലിനെതിരെ നിലപാടെടുത്ത സംഘടനാ നേതൃത്വം പുനഃപരിശോധനയ്ക്ക് തയ്യാറാ കുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു യു ഡി എഫും സംഘപരിവാറുമടക്കം വനിതാമതിലിനെതിരെ നടത്തുന്ന പ്രചാരണങ്ങൾ മതിലിന്റെ ശക്തി വർദ്ധിപ്പി ക്കുമെന്നും ജയരാജൻ പറഞ്ഞു

ഐഐഐ വനിതാമതിൽ പങ്കാളിത്തം കൊണ്ട് ലോക ശ്രദ്ധ നേടുമെന്ന് മന്ത്രി ഡോ

മതിലിനെ വർഗീയവത്ക്കരിക്കുന്നത് ഏറ്റവും വലിയ വർഗ്ഗീയവാദികളാണെന്നും മുഴുവൻ സ്ത്രീകളും മതിലിൽ പങ്കാ ളികളാക ണ മെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു

പൊതുസം വിധാനവും പൊതുപണവും ഇങ്ങനെ ധൂർത്തടിക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിയ്ക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേ ഹം എൻ എസ് എസിനുള്ളിൽ രാഷ്ട്രീയമില്ലെന്നും അംഗ ങ്ങൾക്ക് ഏത് രാഷ്ട്രീയത്തിലും വിശ്വസിക്കാമെന്നും ജനറൽ സെക്രട്ടറി അറിയിച്ചു എല്ലാവരുടെയും വിശ്വാ സങ്ങൾക്ക് വേണ്ടിയാണ് ശബരിമല വിഷയത്തിൽ പ്രതി കരിച്ചതെന്നും സുകുമാരൻ നായർ വൃക്തമാക്കി

പ്രഭാ തഭേരിയോടെ തുടങ്ങിയ ആഘോഷങ്ങൾ നാളെ ജയന്തി സമ്മേളനത്തോടെ സമാപിക്കും

ആചാര സംരക്ഷണമല്ല ക്ഷേത്രങ്ങളിലെ അധികാര സംരക്ഷണമാണ് ചിലർ നടത്തുന്നതെന്നും ശബരിമല യിൽ യുവതീ പ്രവേശനം നടത്താനാണ് വനിതാമതി ലെന്ന ആരോപണം ശരിയല്ലെന്നും വെള്ളാപ്പള്ളി ആല പ്പുഴയിൽ പറഞ്ഞു മതിലിൽ കേരളത്തിലുടനീളം എസ് എൻ ഡി പി യോഗം പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ടാ കുമെന്നും വെള്ളാപ്പള്ളി വൃക്തമാക്കി

ശബരിമലയിൽ വിശ്ചാസി കൾക്കൊപ്പം മുൻപന്തിയിൽ നിന്നത് തങ്ങളാണെന്നും സ്വാഭാവികമായി അതിന്റെ സ്നേഹം എൻ എസ് എസിന് കാണുമെന്നും അദ്ദേഹം പറഞ്ഞു പെരുന്ന യിലെ മന്നം സമാധിയിൽ പൂഷ്പാർച്ച ന നടത്തിയ ശേഷം മാധൃമങ്ങളോട് സംസാരിക്കുകയായി രുന്നു അദ്ദേഹം

മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

പുതുവത്സര പൂജയും സമൂഹ പ്രാർത്ഥനയും അർദ്ധരാ ത്രിയിൽ മഹാസമാധിയിൽ നടന്നു മ്ക്കാക്കാക്കാക്കുക കോട്ടയത്ത് ഡി വൈ എഫ് ഐ ഭീഷണിയെത്തു ടർന്ന് പാത്താമുട്ടം പള്ളിയിൽ കഴിയുന്ന അഞ്ച് കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകാൻ മുഖ്യമന്ത്രി ഇട പെടണമെന്ന് കേന്ദ്രസഹമന്ത്രി അൽഫോൺസ് കണ്ണ ന്താനം ആവശ്യപ്പെട്ടു ഭീഷണി മുഴക്കുന്നവരെ നിയമ ത്തിനു മുന്നിൽ കൊണ്ടു വരണമെന്നും മന്ത്രി പറഞ്ഞു

വടക്കെ ഇന്ത്യയിലേക്ക് ഭൂതക്കണ്ണാടി വച്ചിരിക്കുന്നവർ കേരളത്തിലെ ന്യൂനപക്ഷ ധ്വംസനം കണ്ടില്ലെന്നു നടിക്കുകയാണെന്നും കണ്ണ ന്താനം പറഞ്ഞു

മന്ത്രി ഇ പി ജയരാജൻ കൺവീനറായ സമിതിയിൽ മന്ത്രിമാ രായ ഇ ചന്ദ്രശേഖരൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ അംഗങ്ങളാണ്

ബില്ല് മുടക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണ് മുത്തലാഖ് ബിൽ സെലക്ട് കമ്മറ്റിക്ക് വിടാൻ അനുവദിക്കില്ലെന്നും ഗോയൽ സ്വകാര്യചാനലിനോട് പറഞ്ഞു

എറണാകുളത്ത് ബൂത്ത് പ്രസിഡണ്ടുമാരുടെയും വൈസ് പ്രസിഡണ്ടു മാരുടെയും യോഗത്തിൽ രാഹുൽ പങ്കെടുക്കുമെന്ന് കെ പി സിസി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരുവന ന്തപുരത്ത് അറിയിച്ചു

കൃകൃകൃകൃകൃകൃ ഇന്നലെ അന്തരിച്ച സി പി ഐ എം നേതാവും മുൻ എം എൽ എയുമായ സൈമൺ ബ്രിട്ടോയുടെ ഭൌതിക ശരീരം ഇന്ന് രാത്രി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകും

നേരത്തെ പച്ചാളം ശ്മശാനത്തിൽ സംസ്കരിക്കുമെന്നായിരുന്നു വിവരം

കൊച്ചി ജലമെട്രോ ഈ വർഷം അവസാനം സർവീസ് ആരംഭിക്കുമെന്ന് കെ എം ആർ എൽ അറിയിച്ചു

ഫെബ്രുവരിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും കൃകൃകൃകൃകൃകൃകൃ മലപ്പുറം വഴിക്കടവിനു സമീപം താന്നിക്കടവ് ആദിവാസി കോളനിയിൽ വീണ്ടും മാവോയിസ്റ്റുകളെ ത്തിയതായി റിപ്പോർട്ട്

ആദിവാസികളെ ഭീഷണിപ്പെടുത്തി കൈവശമു ണ്ടായിരുന്ന അരിയും സാധനങ്ങളും വാങ്ങിയാണ് മാവോയിസ്റ്റുകൾ മടങ്ങിയത്

മറ്റന്നാൾ മുംബൈയിൽ രണ്ടാം കാളിഫയറിൽ ഗുജറാത്ത് യു പി യോദ്ധായെ നേരിടും

അർദ്ധരാത്രി ഉണ്ടായ സ്ഫോടനം മറച്ചുവെക്കുകയായി രുന്നുവെന്ന് പൊലീസ് പറഞ്ഞു

ഇവരിൽ നിന്ന് ഒരു കോടി രൂപയുടെ ചരസ് ഓയിൽ ഷാഡോ പൊലീസ് പിടിച്ചെടുത്തു ഒരു തമി ഴ്നാട് സ്വദേശി ഇവർക്കൊപ്പം പിടിയിലായിട്ടുണ്ട്

സർവ്വീസിൽ വീണ്ടും പ്രവേശിക്കാൻ തയ്യാറാകു ന്നവർക്ക് ബോണ്ട് വ്യവസ്ഥകൾക്കും അച്ചടക്ക നടപടി കളുടെ തീർപ്പിനും വിധേയമായി നിയമനം നൽകാവു ന്നതാണ്

കൃകൃകൃകൃകൃകൃ പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തിന് ഗൈനക്കോളജി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ വാക്കത്തോൺ സംഘടിപ്പി ക്കുമെന്ന് കണ്ണൂർ ജില്ലാപ്രസിഡണ്ട് ഡോ മിനി ബാല കൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നാളെ രാവിലെ ജില്ലാ പൊലീസ് മേധാവി ജി ശിവവിക്രം ഫ്ളാഗ് ഓഫ് ചെയ്യും

ഗുരുതര പരിക്കേറ്റ ബേക്കൽ എ എസ് ഐ ജയരാജനെ മംഗലാപുരത്തെ സ്ഥകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

പുലർച്ചെ ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് അപകടം

ഇവർ സഞ്ച രിച്ചു ബൈക്ക് കാറിലിടിച്ചാണ് അപകടം തൃശൂർ വാളൂരിൽ വാഹനാപകടത്തിൽ വിദൃാർത്ഥി മരിച്ചു

പുതുവത്സര്യആഘോഷം കഴിഞ്ഞ് മടങ്ങിയ സംഘത്തിനു നേരെ ജീപ്പ് ഇടിച്ചാണ് അപകടം